ന് ഇറാഖ് പ്രധാനമന്ത്രി ഉഹെദർ അലി അബദിയും ഷിയാ നേതാവ് മുഖ്താഡ അൽ സാദറും പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് സഖ്യത്തിലേർപ്പെടാൻ തീരുമാനിച്ചു

തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും

സ്വീഡനെ പരാജയപ്പെടുത്തി ഇന്നലെ നടന്ന മറ്റ് മൽസരങ്ങളിൽ ദക്ഷിണകൊറിയയ്ക്കെതിരെ മെക്സിക്കോയും ട്യൂണീഷൃയ്ക്കെതിരെ ബെൽജിയവും വിജയിച്ചു

ഗുർഗാവ് ഫരീദാബാദ് എന്നിവിടങ്ങളിൽ മെട്രോ സർവ്വീസുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ബഹദുർഗറിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര നഗരവികസന കാര്യമന്ത്രി ഹർദീപ്പുരി ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഘട്ടർ എന്നിവർ പങ്കെടുക്കും പുതിയ ഇടനാഴിയുടെ സേവനം വൈകുന്നേരം നാല് മണിമുതൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും

മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഇന്നലെ ഷെഹരി വികാസ് മഹോത്സവത്തിന്റെ ഭാഗമായി വൃത്യസ്ത നഗര വികസന പദ്ധത്രികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കൂടുതൽ വിവരങ്ങളുമായി വീണാമുകുന്ദൻ

രാജ്നാഥ് സിംഗ് മംഗോളിയയിലെത്തിയത്

സി ഇലക്ട്രിക്കൽ ലോക്കോഷെഡ് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി മനോജ് സിൻഹ ലോക്കോഷെഡ് ഉദ്ഘാടനത്തിനുശേഷം സെയ്ദ്പൂർ ഭിട്ടാരിയിൽ പൊതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വടക്കു കിഴക്കൻ റെയിൽവേയിലെ പ്രധാന റെയിൽ ലൈനുകളിൽ ഇതിനോടകം വൈദ്യുതവൽക്കരണം പൂർത്തിയായിക്കഴിഞ്ഞു

നജാഫിൽ ഇന്നലെ നടന്ന മൂന്ന് മണിക്കൂർ ചർച്ചകൾക്കു ശേഷമാണ് ഇരു നേതാക്കളും സഖ്യം രൂപീകരിക്കാൻ തീരുമനിച്ച വിവരം പ്രസ്താവനയിലൂടെ അറിയിച്ചത്

ഇതൊടൊപ്പം പാർലമെന്റിലേയും തെരഞ്ഞെടുപ്പ് നടക്കും കഴിഞ്ഞ വർഷം നടന്ന ഭരണ ഘടനാ മാറ്റത്തെ തുടർന്ന് പാർലമെന്ററി സംവിധാനത്തിൽ നിന്നും എക്സിക്യൂട്ടീവ് സംവിധാനത്തിലേക്ക് മാറുന്ന തെരഞ്ഞെടുപ്പാണിത്

ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ട്രാൻസ്പോർട്ട് ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടം

ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട വാഹനം എതിർദിശയിൽ വന്ന ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി

ഇതോടെ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഒന്നാമതെത്തി

ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാനെയും അർജന്റീന നെതർലൻഡ്സിനേയും പരാജയപ്പെടുത്തിയിരുന്നു

രാജ്യത്തിന്റെ രണ്ടാമത്തെ വലിയ നഗ്രമായ് ബുലവായോയിൽ ഇന്നലെ ഭരണകക്ഷി നടത്തിയ രാഷ്ട്രീയ റാലിയിലാണ് ബോംബാക്രമണം നടന്നത്

സംഭവത്തിൽ ഉപപ്രധാനമന്ത്രി മറ്റൊരു ഉപപ്രധാനമന്ത്രിയുടെ ഭാര്യ പരിസ്ഥിതി മന്ത്രി പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവർക്ക് പരിക്കേറ്റു

നാല് പേരെ വാഹനത്തിൽ സഞ്ചരിക്കവെയും ബാക്കി രണ്ട് പേരെ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തതിലൂടെയും ആണ് അറസ്റ്റ് ചെയ്തതെന്ന് ഗിരിധ പോലീസ് സൂപ്രണ്ട് സുരേന്ദ്രകുമാർ ഝാ പറഞ്ഞു

ഖാരിഫ് വിളകളുടെ മികച്ച സമയം ആയതിനാൽ കർഷകരെ സഹായിക്കാൻ ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി പീയൂഷ് ഗോയലിന് കത്ത് എഴുതിയത് വിളവായ്പയുടെ വിതരണ പ്രക്രിയയെക്കുറിച്ച് മന്ത്രിമാർ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകണമെന്ന് ശ്രീ

മുംബൈ പോലീസിലെ ആന്റി എക്സോർഷൻ സെൽ രാംദാസ് രഹാന എന്നയാളെ പാകിസ്ഥാന്തിൽ നിന്നും പണം വാങ്ങി ഹോട്ടൽ ആക്രമിക്കാൻ പദ്ധതിയിട്ടപ്പെയാണ് അറസ്റ്റ് ചെയ്തത്

രാജ്യത്തെ പ്രധാന വിനോദ സഞ്ചാരകേന്ദ്രമായി ഹിമാചലിനെ മാറ്റിയെടുക്കുന്നതിൽ ധനസഹായം നിർണ്ണായകമാകുമെന്ന് മുഖ്യമന്ത്രി ജയ്റാം താക്കൂർ പറഞ്ഞു